എൽ

സംബന്ധിച്ച ഹർജിയിൽ സുപ്രിം കോടതി നാളെ വിധി പറയും ൾ ഭവനനിർമാണം സംബന്റ്സിച്ച് ് കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ അടിയന്തര്മായി തീർപ്പാക്കുമെന്ന് തദ്ദേശവകുപ്പ് മന്ത്രി കേരളത്തിൽ നാ്ളെ മുതൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ് ഇടുക്കി മലപ്പുറം ജില്ലകളിൽ നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യത യൂണിവേഴ്സിറ്റി കോളജ് സംഭവത്തിൽ തലസ്ഥാനത്ത് കെ

യു പ്രതിഷേധംമന്ത്രി കെ ടി ജലീൽ ഗവർണറെ കണ്ടു

കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു

വിമത എംഎൽഎമാരുടെ രാജിയിലും അയോഗ്യതയിലും സ്പീക്കർക്ക് തീരുമാനെമെടുക്കാമെന്ന് സുപ്രീംകോടതി ഇന്ന് രാവിലെ വൃക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ ഇടപെടില്ലെന്നും കോടതി ചീഫ് ജസ്റ്റീസ് അറിയിച്ചിരുന്നു മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയാണ് വിമത എംഎൽഎമാർക്ക് വേണ്ടി ഹാജരായത്

വൃാഴാഴ്ചയാണ് കുമാരസ്വാമി ഗവൺമെന്റ് വിശ്വാസവോട്ട് തേടുന്നത് ഫയൽ അദാലത്ത് കെട്ടിക്കിടക്കുന്ന ഭവന നിർമ്മാണ് പെർമിറ്റ് അപേക്ഷകൾ ഒക്കുപെൻസി അപേക്ഷ്ടകൾ എന്നിവ അടിയന്തിരമായി തീർപ്പാക്കുമെന്ന് മന്ത്രി

കൊച്ചി നഗരത്തിലെ കെട്ടിക്കിടക്കുന്ന പ്പെർമീറ്റ് അപേക്ഷകളും ഒക്കുപെൻസി അപേക്ഷകളും തീർപ്പാക്കുന്നതിനുള്ള ഫയൽ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനുള്ള അനുമതിക്ക് കാലതാമസം നേരിടുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഫയൽ അദാലത്ത് സംഘടിപ്പിച്ചത്

ഈമാസം തന്നെ എല്ലാ അപേക്ഷകളിലും നടപടിയെടുത്ത് തീർപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് പഞ്ചായത്ത് ഡയറക്ടർ ഡോ

കെട്ടിട നിർമാണ ക്രമവത്കരണാനുമതി ഒക്കുപെൻസികെട്ടിട നമ്പർ എന്നിവയ്ക്കുള്ള അപേക്ഷകളും പരിഗണിക്കും സാജൻ ആത്മഹത്യ ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജന്റെ ആത്മഹത്യ കൺവെൻ സെന്ററിന് അനുമതി ലഭിക്കാത്തതിലെ മനോവിഷമം കാരണമെന്ന് ഡിവൈ

എന്നാൽ ആരെയും പ്രതി ചേർക്കാനുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല മറ്റുള്ള പ്രചരണങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളല്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ കൃഷ്ണദാസ് പറഞ്ഞു സാജന്റെ കുടുംബത്തെ അപമാനിക്കാനാണ് കേസ് അന്വേഷണ് സ്പ്രംഘം ശ്രമിക്കുന്നതെന്ന് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മറ്റി ക്ട്രസിറ്റ്ഡ്ണ്ട് സതീശൻ പാച്ചേനി ആരോപിച്ചു കേസ് സി ബി ഐക്ട് കൈമാറണമെന്നാവശ്യപ്പെട്ട് സാജന്റെ ഭാര്യ ഇന്നലെ

ബി ് ഇൻട്രോ വൈദ്യുതി പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ സോളാർ വൈദ്യുതി ഉൽപാദനം കെ

ബി പ്രോത്സാഹിപ്പിക്കുന്നു

ബി ചെയർമാൻ എൻ

പിളള ആകാശവാണിയോട് പറഞ്ഞു

തോമസ് ചാണ്ടിക്ക് ഗവൺമെന്റ് നൽകിയ നികുതിയിളവ് അംഗീകരിക്കാനാവില്ലെന്ന് യുഡിഎഫ് അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ വൃക്തമാക്കി നഗരസഭ നിശ്ചയിച്ച നികുതിയിൽ നിന്നും ഇളവ് വരുത്തി ഗവൺമെന്റ് ഉത്തരവ് നടപ്പാക്കിയ ആലപ്പുഴ നഗരസഭാ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്നും യുഡിഎഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു അതേസമയം ഭരണസമിതി തീരുമാനം അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് എൽഡിഎഫ് അംഗങ്ങൾ

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിലും മഴക്ക് സാധ്യതയുണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി കോളേജിലെ സംഭവങ്ങളിൽ നടപടി ആവശൃപ്പെട്ട് തലസ്ഥാനത്ത് കെഎസ്യു പ്രവർത്തകർ പ്രതിഷേധിച്ചു കേരള സർവ്വകലാശാല ഓഫീസിനകത്ത് മുദ്രാവാക്യം വിളിച്ചും സർവ്വകലാശാല കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയുമായിരുന്നു കെഎസ്യുവിന്റെ പ്രതിഷേധം നാടകീയ രംഗങ്ങളാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി സർവ്വകലാശാല ആസ്ഥാനത്ത് അരങ്ങേറിയത്

അതിനിടെ കോളേജിൽ നടന്ന അക്രമസംഭവങ്ങളിലും അനുബന്ധമായി ഉയർന്ന പരീക്ഷാ ക്രമക്കേട് അടക്കമുള്ള ആക്ഷേപങ്ങളിലും ഗവർണർ വൈസ് ചാൻസിലറോട് റിപ്പോർട്ട് തേടി ഇതേ തുടർന്ന് മന്ത്രി ഏക്കിട്ടി ജലീൽ ഗവർണറുമായി വൈകിട്ട് കൂടിക്കാഴ്ച നടത്തി

നാളെ പുലർച്ചെ നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ പതിവു പൂജകൾക്കും വിശേഷാൽ പൂജകൾക്കും സന്നിധാനത്ത് തുടക്കമാകും കർക്കിടപ്പുലരിയായ നാളെ രാവിലെ നടക്കുന്ന ലക്ഷാർച്ചനക്ക് തന്ത്രി കണ്ഠരര് രാജീവരര് മുഖ്യകാർമ്മികത്വം വഹിക്കും

ഡാറ്റാ ബാങ്ക് നെൽ വയൽ ഡാറ്റാബാങ്കിലെ തെറ്റുതിരുത്താൻ ലഭിച്ച അപേക്ഷകളിൽ പരിശോധന പൂർത്തിയാക്കി ഒരു മാസത്തിനുള്ളിൽ അന്തിമ തീരുമാനമെടുക്കണമെന്ന് കൃഷി കൃന്ത്രി വി

അപേക്ഷകൾ തീർപ്പാക്കാൻ ആവശ്യമെങ്കിൽ അദാലത്തുകൾ നടത്തണം സർവേ നമ്പർ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള അപേക്ഷകളിൽ മാത്രം വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി തർക്കമുള്ള അപേക്ഷകൾ മാത്രം മാറ്റിവച്ചാൽ മതിയെന്നും കൃഷി ഉദ്യോഗസ്ഥരുടെ ഏകദിന ശിൽപശാലയും സംസ്ഥാനതല പദ്ധതി അവലോകനവും ഉദ്ഘാടനം ചെയ്യവെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി

എറണാകുളം ജില്ലയിലെ ചെല്ലാനം കമ്പനിപ്പടി വേളാങ്കണ്ണി എന്നിവിടങ്ങളിൽ കടൽക്ഷോഭം നേരിടുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് കമ്മീഷൻ അംഗങ്ങളായി അഡക്കേറ്റ് ബിന്ദു തോമസ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസൽ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു കാട്ടാന ആക്രമണം കാട്ടാന യുവാവിനെ ആക്രമിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വനപാലകരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് വയനാട് വേലിയമ്പത്ത് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു പുൽപ്പള്ളി നടവയൽ റോഡിൽ രണ്ട് മണിക്കൂറോളം ഉപരോധ സമരം നടത്തി തുടർന്ന് ചെർലത്ത് റെയിഞ്ച് ഓഫീസർ രതീശനടക്കമുള്ള വനപാലകരും പൂൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശടക്കമുള്ള ജനപ്പത്രീൻിധികളും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് റോഡ് ് ഉപ്പ്രോധം അവസാനിപ്പിച്ചത് ഇന്ന് രാവിലെയാണ് ചെതലത്ത് കൃഷ്ണിഞ്ചിലെ പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ജിനീഷ് എന്നു് യുവാവിനെ കാട്ടാന ആക്രമിച്ചത്

ക്രമക്കേട് ആരോപിച്ച് നൽകിയ ഹർജി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പിൻവലിച്ചതിനെ തുടർന്നാണ് കോടതിയുടെ നടപടി കേസ് നടത്തിപ്പിന്റെ ചെലവ് സുരേന്ദ്രൻ നൽകണമെന്ന് ആവശ്യപ്പെട്ട നൽകിയ ഹർജി എതിർകക്ഷി പിൻവലിച്ചതോടെയാണ് നടപടികൾ പൂർണമായി അവസാനിപ്പിക്കാൻ കോടതി തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് ക്രമക്കേട് തെളിയിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും തന്റെ ആരോപണം സാക്ഷി വിസ്താരത്തിലൂടെ തെളിയിക്കാൻ ബുദ്ധിമുട്ടാണെന്നു ചൂണ്ടിക്കാട്ടിയാണ് സുരേന്ദ്രൻ ഹർജി പിൻവലിച്ചത്